യൂറോപ്യൻ പാർലമെന്റിൽ ബ്രക്സിറ്റ് കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രമേയത്തിന് വൻ ഭൂരിപക്ഷത്തോടെ അംഗീകാരം

ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷവിഭാഗം ഡബിൾസിന്റെ ആദ്യ സെമിയിൽ ഇന്ന് റോജർ ഫെഡററും നൊവാക് ജോക്കോവിച്ചും മത്സരിക്കും

ബി യുടെ നാല് വിഭാഗങ്ങളിലെയും അംഗങ്ങൾ ഇന്ന് ഗുവഹത്തിയിൽ ആയുധങ്ങൾ വച്ച് കീഴടങ്ങും

ബി അടുത്തിടെ ന്യൂഡൽഹിയിൽ കേന്ദ്രഗവൺമെന്റുമായും അസം ഗവൺമെന്റുമായും ത്രികക്ഷി സമാധാന കരാറിൽ ഒപ്പുവച്ചിരുന്നു അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളും ധനമന്ത്രി ഹിമന്ദ ബിശ്വ ശർമ്മയും ചടങ്ങിൽ പങ്കെടുക്കും

ലോക്സഭാ സ്പീക്കർ ഓം ബിർലയും രാജ്യസഭാർഅയ്യക്ഷൻ എം വെങ്കയ്യ നായിഡുവും വെവ്വേറെ യോഗങ്ങൾ വിളിച്ച് പാർലമെന്റ് നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിന് വിവിധ കക്ഷി ്നേത്ാക്കളുടെ സഹകരണം അഭ്യർത്ഥിക്കും

ഒരു മാസത്തെ ഇട്ടവേളയ്ക്ക് ശേഷം മാർച്ച് രണ്ടിന് പുനരാരംഭിച്ച് ഏപ്രിൽ മൂന്നു്ന് സ്മ്മേളനം സമാപിക്കും

കമ്മീഷൻ ചെയർ പേഴ്സൺ എച്ച്

പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർ പേഴ്സൺ ബാലാവകാശ കമ്മീഷൻ ചെയർ പേഴ്സൺ ദിവ്യാംഗർക്കുള്ള കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ സമ്പൂർണ സമ്മേളനമാണിത് ന്യൂനപക്ഷ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്നിവരുടെ ചെയർപേഴ്സൺമാരെ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളും മറ്റു കമ്മീഷൻ അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിക്കും

ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആന്റ് ഡവലപ്മെന്റ് ഡയറക്ടർ ജനറൽ വി

കൌമുദിയും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു

പോലീസ് റിസർച്ച് ബ്യൂറോയുടെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രത്യേക പതക്കം ശ്രീ

കൌമുദി സമ്മാനിച്ചു

മിക്കവാറും അംഗരാജ്യങ്ങളെക്കൊണ്ട് അനുകൂല പ്രതീകരണം സ്വീകരിപ്പിക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് മാർച്ച് മാസം മധ്യൂത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ്

ഒരു രാജ്യത്തിന്റെ സഭ പാസ്റ്റാക്കിയ നിയമത്തിൽ മറ്റൊരു സഭ പ്രമേയം ചർച്ച ചെയ്യുന്നത് അനുചിതമാണെന്ന് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി സ്ഥാപിത താൽപ്പര്യങ്ങൾക്കായി ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും ശ്രീ ഓം ബിർള ചൂണ്ടിക്കാട്ടി

ചൈനയിൽ നിന്നുള്ള യാത്രികർ തങ്ങളുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും നിർദ്ദേശിച്ചു

സംസ്ഥാനങ്ങളും കേന്ദ്രഭരണപ്രദേശങ്ങളുമായി ചേർന്ന് കൊറോണ വൈറസ് തടയുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരോഗ്യ മന്ത്രാലയം അവലോകനം ചെയ്തു രാജ്യത്ത് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗൃമന്ത്രി ഡോ

ചൈനയിലെ ഹ്യൂബയ് പ്രവിശ്യയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെയെത്തിക്കുന്നതിനായി രണ്ട് വിമാനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകണമെന്ന് ഇന്ത്യ ചൈനയോട് അഭ്യർത്ഥിച്ചു

ലോകത്താകമാനം ആറായിരത്തോളം പേരിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

യാത്രക്കാരിൽ കൊറോണ വൈറസ് ലക്ഷണങ്ങൾ ് പരിശോധിക്കുന്നതിന് കൈക്കൊണ്ട നടപടികൾ ചെന്നൈ വിമ്ട്ന്നിത്താവളത്തിൽ അവർ അവലോകനം ചെയ്തു ചൈന ഉൾപ്പെടെയുള്ള രാജ്യ്ങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ പരിശോധിക്കുന്നതിനായി ചെന്നൈ മധുരൈ കോയമ്പത്തൂർ ട്രിച്ചി വിമാനത്താവളങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിച്ചു ഇതുവരെ പതിനയ്യായിരത്തോളം യാത്രക്കാരെ പരിശോധിച്ചതായി ശ്രീമതി ബീല രാജേഷ് അറിയിച്ചു

ഉന്നതതല യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി

കേന്ദ്ര ഗവൺമെന്റുമായി നിരന്തരം സമ്പർക്കം പുലർത്തിവരുന്നതായും മാർഗനിർദ്ദേശങ്ങളും ജാഗ്രതാ മുന്നറിയിപ്പുകളും പാലിക്കുന്നതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി

പോലീസ് നടത്തിയ നക്സൽ വിരുദ്ധ നടപടികൾക്കിടെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു

ലഹേരി പോലീസ് ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു

എന്നാൽ യൂണിയനിൽ അംഗമല്ലാത്തത്തിനാൽ ബ്രിട്ടന് നയങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക്ക് യീല്ല

സി മാനദണ്ഡങ്ങൾ ്പാലിക്കാത്തതിന് എച്ച് ഡി എഫ്

ഐ പ്രസ്താവനയിൽ അറിയിച്ചു

ഈ ദിവസം രക്തസാക്ഷിത്വ ദിനമായാണ് രാഷ്ട്രം ആചരിക്കുന്നത് ന്യൂഡൽഹിയിൽ ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ സർവ ധർമ്മ പ്രാർത്ഥനാ സഭയും ഭക്തിസംഗീത പരിപാടിയും സംഘടിപ്പിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി